ജെ

വിജയം സുനിശ്ചിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശമ്പളം നൽകാൻ ആരേയും നിർബന്ധിക്കില്ലെന്ന് ധനമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങളിലെ ലോകബാങ്ക് ന് സംഘത്തിന്റെ സ്ന്ദർശനം തുടരുന്നു

അനുഭവപ്പെടുന്ന കടുത്ത ചൂട് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി ഇന്ന് വിനായകചതുർത്ഥി

ജെ പി പ്രവർത്തകർ മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് എന്റെ പോളിങ്ങ് ബൂത്ത് ഏറ്റവും ശക്തം എന്ന മന്ത്രം മനസ്സിലുറപ്പിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടിഞ്ഞാറൻ അരുണാചൽ ഗാസിയാബാദ് ഹസാരിബാഗ് ജയ്പൂർ റൂറൽ നവാസാ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ ബി ജെ പി കാര്യകർത്താക്കളുമായി നമോ ആപ്പിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി പാർട്ടി പ്രവർത്തകരാണ് അവരുടെ കഠിനാധാനമാണ് പാർട്ടിക്ക് ചരിത്ര വിജയം നേടിതന്നത്

എം തോമസ് ഐസ്ക ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും ഇത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ധനമന്ത്രി ഡോ

സംസ്ഥാനത്തെ വിവിധ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ പിഡബ്ല്യൂഡി വിഭാഗങ്ങൾ തുടങ്ങിയവർ ധനസമാഹരണത്തിനായി മുന്നിട്ടിറങ്ങണം പിഡബ്യൂഡി അവരുടെ റോഡുകൾ മാത്രമല്ല മറ്റ് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുളള റോഡുകളുടെ നിർമ്മാണ പ്രകിയയിലും പങ്കാളികളാകണം

സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പതിനായിരം രൂപ ധനസഹായം ലഭിച്ചെന്ന ആരോപണത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ട്ടടട ഇടുക്കി ഇടുക്കി ജില്ലയിൽ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും വ്യാപകമായ നാശ നഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിൽ ലോകബാങ്ക് സംഘം ഇന്നും സന്ദർശനം നടത്തി

പന്നിയാർകുട്ടി പൊൻമുടി കീരിത്തോട് ചെറുതോണ്ടി ശ്രാടുപുഴപുളിയൻമല റോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് സംഘം സ്ന്ദർശനം നടത്തി

തുടർന്ന് കളക്ടറുമായും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായും യോഗം ചേർന്നു യോഗത്തിനു ശേഷം രണ്ടു സംഘങ്ങളായി തിരിഞ്ഞു ഒരു സംഘം തൃശ്ശൂരിന്റെ നഗര പ്രദേശങ്ങളിലും മറ്റൊരു സംഘം ചാലക്കുടി മേലൂർ അതിരപ്പിള്ളി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലും സന്ദർശനം നടത്തി തുടർന്ന് പ്രളയ ബാധിത സ്ഥലങ്ങൾ സന്ദർശനത്തിനായി പാലക്കാട് ജില്ലയിലേക്ക് സംഘം തിരിക്കും

ഈ മാസം മഴയിൽ ഉണ്ടായ കുറവാണ് ചൂടിനു കാരണമെന്നും ഈ മാസം ഇരുപത്തൊന്നോടുകൂടി സംസ്ഥാനത്ത് മഴ ലഭിച്ചുതുടങ്ങുമെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ഡയറക്ടർ കെ

ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ബിഷപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്

അതേസമയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളുന്നില്ലെന്നും മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി

അതിനിടെ ബിഷപ്പിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കന്യാസ്ത്രീകളുടെ സമരം ഹൈക്കോടതിക്ക് സമീപം ആറാം ദിവസമായ ഇന്നും തുടരുകയാണ്

ഗണപതി ക്ഷേത്രങ്ങളിലും ഗണപതി ഉപദേവനായ ക്ഷേത്രങ്ങളിലും മഹാഗണപതിഹോമം വിശേഷാൽ പൂജകൾ എന്നിവയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നു

മഹാപ്രളയത്തിൽ തകർന്നടിഞ്ഞ പമ്പയും പ്രിസരങ്ങളും പുനരുദ്ധരിക്കാനുളള തീവ്രശ്രമം തിരുവിതാക്കൂർ ദേവസം ബോർഡിന്റെയും വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടേയും നേതൃത്വത്തിൽ നടത്തി വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജിവർഗീസ്

സിംഗിൾ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞദിവസം ഗതാഗത മന്ത്രിയുമായി ജീവനക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് നടത്താനുള്ള തീരുമാനം ഇതേ തുടർന്ന് ഇന്ന് നാല് മണിക്ക് സി എം ഡി ജീവനക്കാരുമായി നടത്താനിരുന്ന ചർച്ച മാറ്റിവച്ചു

പിയുടെ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട നഗരസഭാ പരിധിയിൽ ഹർത്താൽ നടത്തി

പിയുടെ ഓഫീസിൽ കടന്ന പോലീസ് സംഘം ഓഫീസുപകരണങ്ങൾ തകർത്തായും പരാതിയുണ്ട് പാസ്പോർട്ട് ക്യാംപ് പ്രളയത്തിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്കും കേടുപാടുകൾ സംഭവിച്ചവർക്കുമായി തൃപ്പൂണിത്തുറയിലെയും ചെങ്ങന്നൂരെയും പിാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക പാസ്പോർട്ട് ക്യാംപ് ്സംഘടിപ്പിക്കും ശനിയാഴ്ച നടക്കുന്ന ക്യാംപിൽ സൌജന്യമായാകും സേവനങ്ങൾ നൽകുക

ശൈലജ മെഡിക്കൽ കോളേജുകളിൽ മാത്രമുണ്ടായിരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ആശുപത്രി കളിലും ലഭ്യമാക്കിയതായി മന്ത്രി കെ

ഇനിമു തൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കേഡറിലുള്ള ഡോക്ടർമാരുടെ ജനറൽ സേവനം ജില്ലാ ആശുപത്രികളിൽ ലഭൃമാകുന്നതാണ് ആർദ്രം പദ്ധതിയുടെ കീഴിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആശുപത്രികളിൽ മികച്ച സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സൂപ്പർ സ്പെഷ്യാ ലിറ്റി സേവനങ്ങൾ അനുവദിച്ചതെന്നും മന്ത്രി വൃക്തമാക്കി

സിന്ധുവിന് പിന്നാലെ എച്ച്

പ്രണോയിയും ജപ്പാൻ ഓപ്പൺ സൂപ്പർ സിരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്നും പുറത്തായി അതേസമയം കെ

ഹോങ്കോംഗ് താര്ക്ക പ്പോങ് വോങ് കിവിൻ സെന്റിനെ തോൽപ്പിച്ചാണ് ശ്രീക്ടാന്ത് ക്ടാർട്ടറിൽ കടന്നത്